നിസ്സഹകരണ സമരത്തിന്റെ രൂപത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ആത്മനിർഭർ ഭാരതത്തിന്റെ വടവൃക്ഷമാക്കി മാറ്റേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്ന് മൻ കി ബാത് റേഡിയോ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു

ഇത് രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമാണ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ലോക കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കുറവാണ് കമ്പ്യൂട്ടർ ഗെയിം ഉൾപ്പെട്ട്ടിയുള്ള ഈ മേഖലയിലും ഇന്ത്യൻ യുവത്വം കടന്നു ചെല്ലണമെന്ന് പ്രപ്ധാനമന്ത്രി ആവശ്യപ്പെട്ടു

കൊറോണ സാഹചര്യത്തിൽ വിദ്യാഭ്യാസരംഗത്തെ പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തെ അദ്ധ്യാപകർ അവസരത്തി നൊത്ത് മാറിയെന്നും പഠനത്തിൽ സാങ്കേതികവിദ്യ എങ്ങനെ കൂടുതൽ ഉപയോഗിക്കാമെന്നും അവർ തെളിയിച്ചു രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നതുപോലെ നമ്മുടെ അദ്ധ്യാപകർ ഇതിന്റെ നേട്ടം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിൽ മഹത്തായ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കൊറോണയുടെ കഷ്ടപ്പാട് നിറഞ്ഞ ചുറ്റുപാടുകളിലും രാജ്യത്തെ കർഷകർ തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട് ഖാരിഫ് വിളവിറിക്കൽ കഴിഞ്ഞവർഷത്തെക്കാൾ ഏഴ് ശതമാനം കൂടുതലാണ്

ഓണം നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ആഘോഷമാണെന്നും ഓണാഘോഷത്തിന്റെ തിളക്കം എല്ലായി ടത്തും കാണുന്നുവെന്നും ഓണം അന്തർദ്ദേശീയ ആഘോഷമായി മാറുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

സംസ്ഥാനത്തിനകത്തും പുറത്തേക്കും യാത്രകൾക്ക് വിലക്കില്ല കണ്ടെയ്ൻമെന്റ് മേഖലകളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും

പ്രസ്സിൽപിൽ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആളുക്കളാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്

കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ കോവിഡ് പരിശോധനയിൽ രാജ്യം കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്

രാജസ്ഥാൻ ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇത് അഞ്ച് ശതമാനത്തിൽ താഴെയാണ്

കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത കോവിഡ് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിൽ ആറെണ്ണം അവസാനഘട്ടത്തിലാണ്

കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളീയർ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കരുതലോടെ വേണം ഇത്തവണ ഓണം ആഘോഷിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഓണാശംസകൾ നേർന്നു

ശ്രീനഗറിലെ പന്ത്ചൌക് മേഖലയിൽ ഇന്ന്ലെ രാത്രി ഭീകരർ പൊലീസിനും സി

എഫ് നും നേരെ വെടിയുതിർക്കുകയായിരുന്നു

ഇന്നലെ പുലർച്ചെ പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്നു ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയൂകൃ ആരോഗ്യ സെക്രട്ടറിയുമാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന് ഉദ്യോഗസ്ഥരുമായി അവലോകനം നടത്തിയത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ കോവിഡ് പരിശോധനാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും രോഗവ്യാപനം നേരത്തെ കണ്ടെത്താൻ ശ്രദ്ധിക്കണമെന്നും ഫലപ്രദമായ നിയന്ത്രണ പരിപാടികൾ കൊണ്ടുവരണമെന്നും നിർദ്ദേശം നൽകി

സംസ്ഥാനത്ത് പകുതിയിലധികം ജില്ലകളും വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി പെയ്ത മഴയിൽ മഹാനദി കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത് ഹിരാക്കുഡ് അണക്കെട്ടിൽ നിന്നുള്ള അധികജലം തുറന്നു വിടുന്നുണ്ട്

തീരപ്രദേശങ്ങൾ ആയ പുരി കോർദ്ധ കട്ടക്ക് ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ സ്ഥിതിഗതികൾ രൂക്ഷമാണ്

വായ്പയെടുത്തവർക്ക് താൽക്കാലിക ആശ്വാസ മായി ആറ് മാസത്തെ മൊറട്ടോറിയം കാലാവധിയാണ് രണ്ട് തവണയായി റിസർവ്വ് ബാങ്ക് അനുവദിച്ചത്

വൈദ്യുതി ് ബന്ധപ്പുരിട്ട് കുടിവെള്ളവും ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്

കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ടു മാസം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മത്സരം നടന്നത്

അക്സസിബിൾ ഇന്ത്യ സംരംഭത്തിനു കീഴിൽ ഘട്ടർപ്പെട്ടമായി ഇതുസംബന്ധിച്ച ഔദ്യോഗിക കണക്ക് പരിശോഗ്പ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി